ഡി എഫ് യു ഡി എഫ് എൻ ഡി എ മുന്നണികൾ സംസ്ഥാനത്ത് ശക്തമായ ത്രികോണ മത്സരത്തിന് ലക്ഷ്യമിട്ടാണ് ഇത്തവണ രംഗത്തിറങ്ങുന്നത്

ഡി എഫ് തുടർ ഭരണത്തിനും യു ഡി എഫ് തിരിച്ചുവരവിനും എൻ

എ മികച്ച നേട്ടത്തിനും അരയും തലയും മുറുക്കുമ്പോൾ വരുംദിവസങ്ങളിൽതന്നെ മത്സരചിത്രത്തിന് വ്യക്തത ലഭിക്കും

ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം തിരുവനന്തപുരത്ത് ഇന്ന് ചേരും സ്ഥാനാർത്ഥി നിർണയത്തിൽ അന്തിമ തീരുമാനം ഇന്നുണ്ടായേക്കും

എമ്മിലും സ്ഥാനാർത്ഥി ചർച്ച അന്തിമ ഘട്ടത്തിൽ എത്തിനിൽക്കുകയാണ്

ഡി എഫ് യോഗവും ഇന്ന് ചേരുന്നുണ്ട് കോൺഗ്രസും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും തമ്മിൽ സീറ്റ് വിഭജനത്തിൽ ഇന്നും ചർച്ച തുടരും

ഡി എയുടെ ഉഭയകക്ഷി ചർച്ച ഇന്ന് തിരുവനന്തപുരത്ത് ബി ജെ പി സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ ചേരും

പുതു തലമുറയിൽപ്പെട്ടവരെ മത്സരരംഗത്തേക്ക് കൊണ്ടുവരാൻ മുന്നണികൾ ശ്രമിക്കുമ്പോളും അനുഭവ സമ്പത്തും ജനസ്വീകാര്യതയും നേടിയവർ വീണ്ടും മത്സരിക്കണമെന്ന അഭിപ്രായവും ശക്തമാണ്

സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനും മുതിർന്ന നേതാക്കളായ വി എം സുധീരനും പി ജെ കുര്യനും പി സി ചാക്കോയും മത്സരിക്കാനില്ലെന്ന് നേരത്തെ വ്യക്തമാക്കിക്കഴിഞ്ഞു പലവട്ടം ജയിച്ചവരും മത്സരിച്ചവരും വീണ്ടും മത്സരിക്കേണ്ടെന്ന നിലപാട് സി

ഐ

പല മുതിർന്ന നേതാക്കളും അതുകൊണ്ടുതന്നെ ഇത്തവണ മത്സരരംഗത്തുണ്ടാവില്ല പ്രമുഖരെ കളത്തിലിറക്കി ജയസാധ്യത വർദ്ധിപ്പിക്കാൻ ബി ജെ പി ശ്രമം തുടരുകയാണ് മെട്രോമാൻ ഇ ശ്രീധരൻ സുരേഷ്ഗോപി കുമ്മനം രാജശേഖരൻ തുടങ്ങിയവരായിരിക്കും എൻ

എയുടെ സ്ഥാനാർത്ഥി പട്ടികയിലെ പ്രമുഖരെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ദേദ സംസ്ഥാനത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിന് കോൺഗ്രസ് സ്ക്രീനിംഗ് കമ്മിറ്റി രൂപീകരിച്ചു എച്ച് കെ പാട്ടീലാണ് സമിതി ചെയർമാൻ

ഐ

സി ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ കെ

സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തുടങ്ങിയവർ സമിതിയിൽ അംഗങ്ങളായിരിക്കും ദേദ ഇടുക്കി ജില്ലയിലെ നിയോജക മണ്ഡലങ്ങളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ആന്റി ഡിഫേസ്മെന്റ് സ്ക്വാഡ് രൂപീകരിച്ചു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചട്ടലംഘനങ്ങളും ഗവൺമെന്റ് കെട്ടിടങ്ങളിലും പൊതുസ്ഥലങ്ങളിലും അനധികൃത പരസ്യങ്ങൾ സ്ഥാപിക്കുന്നതും നിരീക്ഷിച്ച് പരിഹാര നടപടികൾ സ്വീകരിക്കാനാണ് സ്ക്വാഡ് രൂപീകരിച്ചിരിക്കുന്നത് ദേദ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതോടെ പത്തനംതിട്ട ജില്ലയിൽ പൊതു സ്ഥലങ്ങളിലെ പോസ്റ്ററുകൾ ബാനറുകൾ കൊടികൾ എന്നിവ ആന്റി ഡിഫേയ്സ്മെന്റ് സ്ക്വാഡ് നീക്കം ചെയ്തു ജില്ലയിലെ ഓരോ നിയോജക മണ്ഡലത്തിലും ഓരോ ആന്റി ഡിഫേസ്മെന്റ് സ്ക്വാഡ് രൂപീകരിച്ചിട്ടുണ്ട് ദേദ നിയമസഭാ തിരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ കോവിഡ് നിയന്ത്രണങ്ങൾ കർശനമാക്കാൻ കൊല്ലം ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകി

ആൾക്കൂട്ടങ്ങൾ നിയന്ത്രിക്കാനും ശരിയായ മാസ്ക് ധാരണം ഉറപ്പാക്കാനുമാണ് നടപടി ദര തൃശൂർ ജില്ലയിൽ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ പരിശീലനം പൂർത്തിയായി

ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ നയിക്കുന്ന വിജയയാത്ര ഇന്ന് ആലപ്പുഴ ജില്ലയിൽ പര്യടനം നടത്തും രാവിലെ ജില്ലാ അതിർത്തിയായ തണ്ണീർമുക്കത്ത് ജില്ലാ ഭാരവാഹികളും മറ്റ് നേതാക്കളും ചേർന്ന് യാത്രയെ സ്വീകരിക്കും തുറവൂർ ആലപ്പുഴ ഹരിപ്പാട് മാവേലിക്കര ചെങ്ങന്നൂർ എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം വൈകീട്ട് ചെങ്ങന്നൂരിൽ ജില്ലാതല സമാപന സമ്മേളനം യുവമോർച്ച ദേശീയ പ്രസിഡന്റ് തേജസ്വി സൂര്യ എം

കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ മുഖ്യപ്രസംഗം നടത്തും ദേദ രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു

തമിഴ്നാട്ടിലും പഞ്ചാബിലും പ്രത്യേക കേന്ദ്ര സംഘത്തെ നിയോഗിച്ചതായി കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി രാജേഷ് ഭൂഷൺ അറിയിച്ചു ഇന്നലെ ഉച്ചവരെ ഒന്നരക്കോടിയോളം പേർ കോവിഡ് വാക്സിൻ സ്വീകരിച്ചതായും സെക്രട്ടറി പറഞ്ഞു

തൃശൂർ മലപ്പുറം കോഴിക്കോട് എറണാകുളം ജില്ലകളൊഴിച്ചാൽ മറ്റിടങ്ങളിൽ മുന്നൂറിൽ താഴെയാണ് പുതിയ രോഗികളുടെ എണ്ണം

ദേദ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് കോവിഡ് വാക്സിൻ നിർബന്ധമാക്കി സർക്കുലർ ഇറക്കിയതിനെതിരെ ഇന്റർനാഷണൽ ഫോറം ഫോർ പ്രൊമോട്ടിംഗ് ഹോമിയോപ്പതി മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകി പകർച്ച തടയാനോ രോഗം വരാതിരിക്കാനോ പൂർണ്ണമായി സാധിക്കുമെന്ന് നിർമ്മാതാക്കൾ അവകാശപ്പെടാത്ത വാക്സിൻ നിർബന്ധമാക്കിയത് മനുഷ്യാവകാശ ലംഘനമാണെന്ന് സംഘടന ആരോപിച്ചു ദേദ കളിപ്പാട്ട നിർമ്മാണരംഗം മികച്ച നിക്ഷേപ മേഖലയാണെന്നും ദീർഘകാല കാഴ്ചപ്പാടോടെ ഇതിന്റെ വികസനത്തിന് ഗവൺമെന്റ് നടപടിയെടുത്ത് കഴിഞ്ഞതായും കേന്ദ്രമന്ത്രി പിയൂഷ് ഗോയൽ പറഞ്ഞു രാജ്യത്ത് ഇതിന്റെ ഭാഗമായി കളിപ്പാട്ട ക്ലസ്റ്ററുകൾ രൂപീകരിക്കുമെന്നും പിയൂഷ് ഗോയൽ അറിയിച്ചു ഇന്ത്യയുടെ പ്രഥമ കളിപ്പാട്ട മേളയുടെ സമാപന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കളിപ്പാട്ട നിർമ്മാണ രംഗത്ത് രാജ്യത്തെ സ്വയംപര്യാപ്തമാക്കുന്നതിന് പുറമെ ഇന്ത്യൻ ബ്രാൻഡ് കളിപ്പാട്ടങ്ങൾ ലോക വ്യാപകമായി എത്തിക്കാനുമാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത് രാജ്യത്തിന്റെ സംസ്കാരവും പാരമ്പര്യവും പ്രകടമാക്കുന്ന കളിപ്പാട്ടങ്ങൾ കുട്ടികളിലെ മാനസിക വളർച്ചയ്ക്ക് വഴിയൊരുക്കുമെന്ന് മന്ത്രി വിലയിരുത്തി പരമ്പരാഗത കളിപ്പാട്ട മേഖലയെ ശാക്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നാല് ദിവസത്തെ മേള സംഘടിപ്പിച്ചത് ദേദ എത്തനോൾ അടക്കം ബദൽ ഇന്ധനങ്ങൾ ഉപയോഗിക്കാവുന്ന എഞ്ചിനുകൾ തദ്ദേശീയമായി വികസിപ്പിക്കാൻ കാർ ഉത്പാദകർ തയ്യാറാകണമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ആവശ്യപ്പെട്ടു

ദേദ വിദേശനാണ്യ വിനിമയ ചട്ടലംഘനം ആരോപിച്ച് കിഫ്ബിക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുത്തു

എം എബ്രഹാം ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ വിക്രംജിത്ത് സിംഗ് ആക്സിസ് ബാങ്കിന്റെ മുംബൈ മേധാവി തുടങ്ങിയവർക്ക് ചോദ്യം ചെയ്യലിന് ഒരാഴ്ചക്കകം ഹാജരാകാൻ നിർദ്ദേശം നൽകി ഇ ഡി നോട്ടീസയച്ചു കേന്ദ്രാനുമതിയില്ലാതെ വിദേശ ധനസഹായം സ്വീകരിച്ചത് ചട്ടലംഘനമാണെന്ന് കാണിച്ചാണ് നോട്ടീസ് ദേദ സംസ്ഥാനത്തെ ഗവൺമെന്റ് മെഡിക്കൽ കോളജ് ഡോക്ടർമാർ അനിശ്ചിതകാല ബഹിഷ്കരണ സമരം തുടങ്ങി ശമ്പള കുടിശികയും അലവൻസും നൽകാത്തതിൽ പ്രതിഷേധിച്ച് ഒ പിയും പേവാർഡ് ഡ്യൂട്ടിയും നോൺ കോവിഡ് യോഗങ്ങളും അടക്കം ബഹിഷ്കരിക്കാനാണ് ഡോക്ടർമാരുടെ തീരുമാനം

എഫ് സംസ്ഥാന വ്യാപകമായി ജില്ലാ കേന്ദ്രങ്ങളിൽ ഇരുചക്ര വാഹനങ്ങൾ അണിനിരത്തി ചക്രശൃംഖല സംഘടിപ്പിക്കും കോർപ്പറേറ്റുകൾക്ക് വേണ്ടി കേന്ദ്രം വിലവർദ്ധനക്ക് കൂട്ടുനിൽക്കുകയാണെന്ന് സംഘടന കുറ്റപ്പെടുത്തി ദേദ സംസ്ഥാന വനിതാ കമ്മീഷൻ കൊല്ലം ജവഹർ ബാലഭവനിൽ രാവിലെ നടത്താനിരുന്ന മെഗാഅദാലത്ത് അടുത്ത ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി വാഹന പണിമുടക്കിനെ തുടർന്ന് അദാലത്ത് മാറ്റുകയായിരുന്നു ദേദ നോർത്ത് സിക്കിമിലെ തങ്കുവിൽ വാഹനാപകടത്തിൽ കണ്ണൂർ ന്യൂ മാഹി സ്വദേശിയായ സൈനികൻ ഹവിൽദാർ സുധീഷ് കുമാർ മരിച്ചു

രണ്ടുപേർ മരിച്ചു